കോവിഡിനെതിരായുളള പോരാട്ടത്തിൽ അക്ഷീണം ന് പ്രയത്നിച്ച ആരോഗ്യപ്രവർത്തകരോട് രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പതാക ഉയർത്തി

ശതമാനമായി ഉയർന്നു മരണ നിരക്കിൽ ഗണ്യമായ കുറവ്

രാജൃസുരക്ഷിയ്ക്കുവേണ്ടി ന്നിലക്കൊള്ളുന്ന സൈന്യത്തിനും അർദ്ധസൈനിക വിഭാഗത്തിനും കൃതജ്ഞത അർപ്പിക്കേണ്ട സമയമാണിതെന്നും പ്രധാന്യമ്പ്രി പറഞ്ഞു

രാജ്യത്തിന്റെ സ്വാതന്ത്യം സംരക്ഷിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്ന സൈന്യത്തെയും പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു രാജ്യം നേരിടുന്ന പ്രളയം പോലുള്ള എല്ലാ പ്രതിസന്ധികളും ഒറ്റക്കെട്ടായി നേരിടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം രേഖപ്പെടുത്തി

രാജ്യത്തിന്റെ സംസ് കാരവും പാരമ്പര്യവും വേരോടെ പിഴുതെറിയാനുള്ള എല്ലാ ശ്രമങ്ങളും പോയ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് രാജ്യാതിർത്തി വികസിപ്പിക്കുന്നത് പല രാജ്യങ്ങളുടെയും അടിമത്തത്തിന് കാരണമായി തീർന്നിട്ടുണ്ടെങ്കിലും യുദ്ധങ്ങൾക്ക് നടുവിലും സ്വാതന്ത്ര്യസമരത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ടു പോയില്ലു

സാമ്പത്തിക വളർച്ചയിലും വികസനത്തിലും രാജ്യം ലക്ഷ്യമിടുമ്പോൾ ഈ യാത്രയിൽ മനുഷ്യത്പത്തിനുള്ള നിർണ്ണായക പങ്ക് നിലനിർത്തണമെന്നും ശ്രീ

രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ലോകത്തെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

രാജ്യത്തെ കർഷകർക്ക് ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി അടുത്തിടെ ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന സൌകര്യ നിധി ലഭ്യമാക്കിയത് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞവർഷം ചുവപ്പു കോട്ടയിൽ വച്ച് പ്രഖ്യാപിച്ച ജൽ ജീവൻ പദ്ധതിക്ക് കീഴിൽ നിലവിൽ ഒരു ലക്ഷത്തിലേറെ വീടുകളിൽ ദിവസവും ജല ലഭ്യത ഉറപ്പാക്കാനായതായും ശ്രീ

ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ മുന്നേറ്റത്തിനും സ്വയംപര്യാപ്ത ഭാരതത്തിൽ ഏറെ പങ്കു വഹിക്കാനുണ്ട്

സ്വാശയ ഭാരതം യാഥാർഥ്യമാക്കുന്നതിൽ സ്ത്രീ ശാക്തീകരണത്തിന് ഏറെ പങ്കു വഹിക്കാനുണ്ട്

രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിപ്തവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്ന ഈ പദ്ധതിക്കു കീഴിൽ എല്ലാ പൌരന്മാർക്കും തിരിച്ചറിയൽ ആരോഗ്യ കാർഡുകൾ ലഭ്യമാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

സ്വാതന്ത്യദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് ശ്രീ

തിരുവനന്തപുരത്ത് സ്ൻട്രൽ സ്റ്റേഡിയത്തിലാണ് പ്രധാന ചടങ്ങുകൾ നടന്നത്

എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ ജില്ലാ കളക്ടർമാരും മലപ്പുറത്ത് ഡെപ്യൂട്ടി കളക്ടറും കോഴിക്കോട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും പതാക ഉയർത്തി

മുഖ്യമന്ത്രിയും മന്ത്രിമാരായ കെ കെ ശൈലജ എ സി മൊയ്ദീൻ ഇ

നിരീക്ഷണത്തിൽ പോയ സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ അഭിവാദ്യം സ്വീകരിക്കുന്നതിൽ പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്

ഒരു ദിവസം കൊണ്ട് രോഗമുക്തി നേടുന്നവരുടെ ഏറ്റവും ഉയർന്ന നിരക്കാണ്ട് ഇത്

കോവിഡ് മരണങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്

ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള അമേരിക്കയിൽ കൊവിഡ് ബാധിതരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുന്നു

ലഡാക്കിലെ വികസന പദ്ധതികൾ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് സിക്കിം ഒരു ജൈവ സംസ്ഥാനം ആയി മാറിയത് പോലെ ഒരു കാർബൺ ന്യൂട്രൽ മേഖലയായി ലഡാക്കിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടർന്നു വ്രിക്യാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി